സംസ്ഥാനം ഡിജിറ്റൽ റീ സർബ്ബ് സംവിധാനത്തിലേക്ക് മാറുമെന്ന് റവന്യൂമന്ത്രി ഇ ചന്ദ്രശേഖരൻ സ്പീക്കറുടെ ഡയ്സിൽ കയറി മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ നടപടി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്ക് മാനദണ്ഡങ്ങൾക്കനുസൃതമായി അംഗീകാരം നൽകാനാകുമോ എന്ന് പരിശോധിച്ച് വരികയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യ ബംഗ്ലാദേശ് ഡേ നൈറ്റ് ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ കൊൽക്കത്തയിൽ തുടക്കം പാലാരിവട്ടം പാലം കൊച്ചി പാലാരിവട്ടം പാലത്തിന്റെ ഭാര പരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി മൂന്ന് മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കണം പരിശോധനയ്ക്കുള്ള കമ്പനിയെ ഗവൺമെന്റിന് നിർദ്ദേശിക്കാമെന്നും അതിനുള്ള ചെലവ് നിർമ്മാണ കമ്പനി വഹിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു പാലം പൊളിക്കുന്നതിനെതിരെ മുൻ നിർമ്മാണ കമ്പനി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്നാൽ പാലം തികച്ചും സുരക്ഷിതമല്ലെന്നാണ് ഗവൺമെന്റിന്റെ വാദം

ഭൂരേഖ പരിപാലന ന്റെട്ടപ്ടികൾ ലഘൂകരിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ്ചോദ്യങ്ങൾക്കു മറുപടിയായി മന്ത്രി സഭയെ അറിയിച്ചു നിയമസഭ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ താൽക്കാലികമായി നിർത്തിവച്ചു ഇന്നലെ ശൂന്യവേളയിൽ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറി മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷാംഗങ്ങളെ സ്പീക്കർ സെൻഷർ ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ബഹളം തുടങ്ങിയത്

പ്രതിപക്ഷത്തെ റോജി എം ജോൺ എൽദോസ് കുന്നപ്പിള്ളി ഐ

ബാലകൃഷ്ണൻ അൻവർ സാദത്ത് എന്നിവരെയാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സെൻഷർ ചെയ്തത്

ഇന്നലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന സർവകക്ഷിയോഗത്തിൽ അംഗങ്ങൾക്കെതിരെ നടപടി എടുക്കുന്ന കാര്യം പ്രതിപക്ഷവുമായി കൂടിയാലോചിച്ച് മാത്രമെ ചെയ്യുകയുള്ളൂ എന്ന് സ്പീക്കർ ഉറപ്പു നൽകിയതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാ്ട്ടി എന്നാൽ അംഗങ്ങളെ സെൻഷർ ചെയ്യുന്നത് സ്പീക്കറെന്ന് ന്നിലയിൽ തന്റെ മാത്രം തീരുമാനമാണെന്ന് ശ്രീ

ഇന്നലെ സ്പീക്കറുടെ ഡയസിന് ചുറ്റ്ട് പ്പതിഷേധിച്ച അംഗങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് സർവ്വകൾമി യോഗത്തിൽ നിർദ്ദേശിച്ചത് ശ്രീ

ബഹളത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ച സഭ പിന്നീട് പുനരാരംഭിച്ചു

എൽ എ മാർക്കെതിരെ സ്പീക്കർ നടപടി സ്വീകരിച്ചതിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല

കഴിഞ്ഞകാല സംഭവങ്ങൾ സ്പീക്കർ മറക്കരുതെന്നും ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭ മീഡിയാ റൂമിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

പൊതു വിദ്യാഭ്യാസം ശാക്തീകരിച്ച് ജനകീയമാക്കി കൂടുതൽ കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ നയമെന്ന് മന്ത്രി വൃക്തമാക്കി വിദ്യാലയങ്ങളുടെ ഗുണനിലവാരവും അദ്ധ്യാപകരുടെ ശമ്പള ഘടനയിലെ അപാകതയും പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു

സുധാകരൻ നിയമസഭയിൽ അറിയിച്ചു

പ്രധാന പാതകളിൽ നിശ്ചിത അകലത്തിൽ ശുചിമുറികളും വിശ്രമകേന്ദ്രങ്ങളും സ്ഥാപിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു ഇത്തരം കേന്ദ്രങ്ങൾ ഗവൺമെന്റ് തന്നെ സ്ഥാപിച്ച് പരിപാലിക്കുമെന്ന് ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകി

വാളയാർ കേസിലെ പ്രതീക്ൿക്ക് നോട്ടീസ് അയയ്ക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന ഗവൺമെന്റിന്റെ അപ്പീലിലാണ് നടപടി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു

പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഡിസംബർ രണ്ടാണ്

ക്ലാസിൽ പാമ്പ് ഉണ്ടെന്നും ഷെറിനെ കടിച്ചത് പാമ്പ് ആണെന്നും അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടും നടപടി എടുത്തില്ലെന്നു വിദ്യാർഥികൾ പറയുന്നു എന്നാൽ കൃത്യസമയത്ത് ഇടപെട്ട് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതായി പ്രിൻസിപ്പൽ പറഞ്ഞു

കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്

ക്രിക്കറ്റ് ഇന്ത്യയും ബംഗ്ലാദേശും ആദ്യമായി പങ്കെടുക്കുന്ന ഡേ നൈറ്റ് ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ തുടക്കമാകും പിങ്ക് നിറത്തിലുള്ള പന്ത് ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര മത്സരമാണിത് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ചുവന്ന പന്തുകൾക്ക് പകരം ഡേ നൈറ്റ് മത്സരത്തിന് പിങ്ക് ഉപയോഗിക്കുന്നത് കാഴ്ചാ ക്ഷമതയ്ക്കു വേണ്ടിയാണ്

ശബരിമല കൌണ്ടർ ശബരിമല തീർത്ഥാടകർക്ക് സഹായമൊരുക്കാൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദേവസ്വംബോർഡ് പ്രത്യേക കൌണ്ടർ തുടങ്ങി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ഉദ്ഘാടനം ചെയ്തു